പി എം

എ മാ്രെ അയോഗ്യരാക്കണമെന്ന പരാതി രാഷ്ട്രപതി തളളി

മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു

ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കേണ്ടത് സാമൂഹിക സംഘടനകളുടെ കർത്തവൃമെന്നും രാഷ്ട്രപതി ന്യൂഡൽഹിയിൽ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത് നാല് ദിവസത്തെ ആഗോള ആര്യസമാജ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉത്സവകാലം തുടങ്ങിക്കഴിഞ്ഞു ഡൽഹി പോലെയുള്ള നഗരങ്ങളിൽ അന്തരീക്ഷ മലിനീകരണം മുഖേനയുള്ള ശ്വാസകോശ രോഗങ്ങൾ കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു

അനീതിക്കെതിരെ ധൈര്യപൂർവ്വം പോരാടിയ ഒരു സ്ഥാമൂഹ്യപരിഷ്കർത്താവായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് കീാര്യം നാം ഓർമ്മിക്കേണ്ടതാണ് വിദ്യാഭ്യാസം അയിത്ത് കൃഷ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിൽ സ്വാമിക്ക് ദ്ദ്യാനന്ദ സരസ്വതി തുടങ്ങി വച്ച പ്രവർത്തനങ്ങൾ ഇന്നുട്ട് പ്രസക്തിയുള്ളതാണ്

സ്വാമിജിയുടെ ദീർഘവീക്ഷണം സമൂഹത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആധുനിക വിദ്യാഭ്യാസത്തിൽ ഊന്നിയുള്ള ആര്യസമാജത്തിന്റെ സംഭാവനകളേയും സ്ത്രീകളുടേയും അടിച്ചമർത്തപ്പെട്ടവരുടേയും ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെയും രാഷ്ട്രപതി പ്രശംസിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബാരാമുള്ള ജില്ലയിലെ ക്രീരി മേഖലയിലാണ് ഒളിച്ചിരിക്കുന്ന ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ വെടിവയ്പ് തുടരുന്നത് അതിരാവിലെ പ്രദേശത്ത് സംയുക്ത സേന നടത്തിയ തിരച്ചിലിനിടെയാണ് ആക്രമണം തുടങ്ങിയത് ഭീകരർ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് സംശയിക്കുന്ന മേഖലകളിൽ തെരച്ചിൽ ശക്തമാക്കിയതായി സുരക്ഷാസേന അറിയിച്ചു കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല

എ മാരെ അയോഗ്യരാ്ക്കുണ്മെന്നുള്ള ഹർജി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നിരൂസിച്ചു ഡൽഹിയിലെ ഗവൺമെന്റ് ആശുപ്ത്രികളുമായി ബ്ധ്ധിപ്പെട്ട് പ്രവർത്തിക്കുന്ന രോഗി കല്യാൺ സമിതിയിൽ ഇവരെ രീ്യുമിച്ചത് ചോദ്യം ചെയ്തായിരുന്നു പരാതി തിരഞ്ഞെടുപ്പ് കമ്മീഷ്ന്റെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി നിരസിച്ചത് ആശുപത്രികളിലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും പ്രതിഫലം പറ്റുന്നു എന്ന വാദത്തിന് അടിസ്ഥാനമില്ലെന്ന് തിരഞ്ഞെടുപ്പ് സമിതി കണ്ടെത്തിയിരുന്നു രോഗി കല്യാൺ സമിതി ചെയർപേഴ്സൺ സ്ഥാനം അയോഗ്യതയ്ക്കുള്ള മാനദണ്ഡമല്ല എന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു

ആർ കോൺഗ്രസ് നേതാവ് ജഗ്മോഹൻ റെഡ്സിക്കെതിരെ വിശാഖപട്ടണം വിമാനത്താവളത്തിൽ വച്ച് നടന്ന ആക്രമണത്തിൽ വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭു നടുക്കം പ്രകടിപ്പിച്ചു വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണം നടത്താൻ അന്വേഷണ ഏജൻസികളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിച്ചു സംഭവത്തിന്റെ ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു തെറ്റ് ചെയ്തയാൾ എന്തായാലും ശിക്ഷിക്കപ്പെടും എന്നും അദ്ദേഹം പറഞ്ഞു

സുരേഷ് പ്രഭു പറഞ്ഞു

ശബരിമലയിൽ യുവതീപ്രിപ്പ്പെഴ്നത്തിനെതിരെ വൻ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് യോഗം വിളിച്ചതെങ്കിലും യുവതീപ്രവേശന വിഷ്യം യോഗത്തിൽ ചർച്ച ചെയ്യാനിടയില്ല

ശബരിമല ക്ഷേത്രപരിസരത്ത് കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുവാനും യോഗത്തിൽ തീരുമാനമായി

ഭീമ കോറിഗോൺ അക്രമസംഭവങ്ങളെ കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കാൻ മഹാരാഷ്ട്ര പൊലീസിന് സമയം നീട്ടി നൽകിയത് റദ്ദാക്കിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് മഹാരാഷ്ട്ര ഗവൺമെൻറ് നൽകിയ അപ്പീൽ സുപ്രീംകോടതി നാളെ പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് രജ്ഞൻ ഗൊഗോയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ബഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ഹർജി അടിയന്തിരമായി പരിഗണിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിയില്ലെങ്കിൽ അത് അന്വേഷണത്തെ ദോഷകരമായി ബാധിക്കുമെന്നും നിശ്ചിതസമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന കാരണത്താൽ അക്രമസംഭവങ്ങളിലെ കുറ്റാരോപിതർക്ക് ജാമ്യം ലഭിക്കുന്നതിന് കാരണമാകുമെന്നും ഗവൺമെന്റ് അഭിഭാഷകൻ സുപ്രീംകോടതിയിൽ ബോധിപ്പിച്ചു ഇതിനെ തുടർന്നാണ് ജസ്റ്റിസുമാരായ എസ്

സംഭവങ്ങളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുന്നതിന് കീഴ്ക്കോടതി മഹാരാഷ്ട്ര പൊലീസിന് സമയം നീട്ടി നൽകിയത് ഇന്നലെയാണ് ഹൈക്ക്ട്ടേതി റദ്ദു ചെയ്തത്

പി ഡയറക്ടർ ജനറൽ ആർ

പച്ച്നങ്യും മുതിർന്ന ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു

ഇന്തോ ചൈന അതിർത്തിയിൽ സുരക്ഷ ഒരുക്കുന്നതിനൊപ്പം നക്സൽ ബാധിത പ്രദേശങ്ങളിലെ ആഭ്യന്തര സുരക്ഷയും ഈ ജവാന്മാർ നിർവ്വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

തൊഴിലിടങ്ങളിൽ അതിക്രമം നേരിടുന്ന വനിതകൾക്ക് ദേശീയ വനിതാ കമ്മീഷനിൽ നേരിട്ടും പരാതി നല്കാവുന്നതാണ്

പോർട്ടലിൽ വരുന്ന പരാതികൾ സ്ഥാപനത്തിന്റെ ആന്തരിക പരാതി പരിഹാര സെല്ലിന് കൈമാറും പരാതി പരിഹാരത്തിലെ പുരോഗതി പോർട്ടൽ മുഖാന്തിരം വിലയിരുത്താവുന്നതാണെന്ന് മന്ത്രി അറിയിച്ചു

വിരാട് ക്ടൊഹ്ലി നയിക്കുന്ന ടീമിൽ മറ്റ് മാറ്റങ്ങൾ ഇല്ല

സുശക്തമാകാനുള്ള ഇന്ത്യയുടെ പരിശ്രമത്തെക്കുറിച്ച് അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ ബോധവാന്മാരാണെന്നും അവർ അറിയിച്ചു റഷ്യ പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിയാണെന്നും പ്രതിരോധ ഉപകരണങ്ങൾക്കായി ഇന്ത്യ നിരവധി രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു

എയർസെൽ മാക്സിസിന്റെ അനുബന്ധ സ്ഥാപനമായ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ സർവ്വീസസ് ഹോൾഡിംഗ്സ് എന്ന കമ്പനിക്ക് വിദേശ നിക്ഷേപ പ്രോത്സാഹന ബോർഡിന്റെ അനുമതി ലഭിക്കാൻ ആ കാലയളവിൽ ധനമന്ത്രിയായിരുന്ന പി ചിദംബരം ഇടപെട്ടു എന്നതാണ് കേസ്